രാജ്യത്ത് നവരാത്രി ഉത്സവത്തിന് തുടക്കമായി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഗുജറാത്ത്

രണ്ടാം മൃത്സൂരത്തിൽ ടോസ് നേടിയ ചെന്നൈ ഡൽഹിളക്ക്തിരെ ബാറ്റിങ് തെരഞ്ഞെടുത്തു

രാജ്യമെമ്പാടും കോവിഡ് വാക്സിൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു

ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും സി എസ് ഐ ആറിന്റെയും തലവന്മാരുമായി നടന്ന ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം വിശദവിവരങ്ങളുമായി കിരൺ ശങ്കർ വോയ്സ് ലോകത്ത് ഒമ്പതോളം കോവിഡ് വാക്സിനുകൾ അന്തിമ ഘട്ടത്തോട് അടുക്കുന്നുണ്ട് ഇന്ത്യയിൽ മൂന്ന് വാക്സിനുകളിൽ ഒരെണ്ണമാണ് മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിലുള്ളത് മറ്റ് രണ്ടെണ്ണം രണ്ടാം ഘട്ട പരീക്ഷണങ്ങളിലും ഇന്ത്യ ഉടൻ തന്നെ സ്വന്തമായി കോവിഡ് വാക്സിൻ ഉത്പാദിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോ

കോവിഡിനെതിരെയുള്ള പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല

രോഗവ്യാപനം നിയന്ത്രിക്കാൻ കോവിഡ് ചട്ടങ്ങൾ പാലിക്കാൻ ഓരോ പൌരന്മാരും ബാധ്യസ്ഥരാണെന്നും മന്ത്രി പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജന്ത്യു തുടർച്ചയായി ഓരോ നാഴികക്കല്പുകൾ പിന്നിടുകയാണ് പ്ലോക്ത്തെ ഏറ്റവും മികച്ച രോഗമുക്തി നിരക്കും ഏറ്റവും ക്ടൂറ്റ്ഞ്ഞ മരണനിരക്കുമാണ് രാജ്യത്തുള്ളത് നിലവിലുള്ള ര്യൂഗികളുടെ എണ്ണത്തിലും കുറവു വരുന്നു

പി പി ഇ കിറ്റുകൾ മുഖാവരണങ്ങൾ വ്കെന്റില്ലേറ്ററുകൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്ത്മൃായെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശ്വാണി

രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം എട്ട് ലക്ഷത്തിന് താഴെയായി

മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിൽ ആയിരത്തിലേറെപ്പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു

അമേരിക്ക മെക്സിക്കോ ബ്ര്സീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം തുടരുക്ക്യാണ് ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉത്സവാശംസകൾ നേർന്നു

കോവിഡ് ചട്ടങ്ങൾ പാലിച്ച് ചടങ്ങുകൾ മാത്രം നടത്താനാണ് തീരുമാനം

കോവിഡ് മഹാമാരിക്കിടയിലാണ് പത്ത് ദിവസം നീളുന്ന ആഘോഷങ്ങൾ

തിങ്കളാഴ്ചയാണ് പരിപാടി

ഇരുസംസ്ഥാനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് ശ്രീ

വെള്ളപ്പൊക്കം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി

വരൾച്ച ബാധിത പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന തരത്തിൽ ശൃംഖല രൂപീകരിച്ചാൽ വെള്ളപ്പൊക്കത്തിൽ നിന്നു രക്ഷ നേടാനാകും മറ്റു മേഖലകളിലെ കാർഷിക അഭിവൃദ്ധിക്കും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായും ശ്രീ ഗഡ്കരി ചർച്ച് നടത്തി

കേന്ദ്രസർക്കാരിന്റെ ആ തീരുമാനത്തെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വാഗതം ചെയ്തതായും ശ്രീ

ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു ടോസ് നേടിയ ചെന്നൈ ബാറ്റിങ് തെരഞ്ഞെടുത്തു

എൻഡിഎ സ്ഥാനാർഥികളെ പിന്തുണച്ച് ബിജെപിയും ജെഡിയു നേതാക്കളും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു ബിജെപി നേതാവ് ഭൂപേന്ദ്ര യാദവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും വിവിധ പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു ആർജെഡി നേതാവ് തേജസ്വി പ്രസ്എദ്ട് ിയാദവ് ഉൾപ്പെടെയുള്ള മഹാസഖ്യം നേത്രുക്കളും ബിഹാറിൽ വിവിധയിടങ്ങളിൽ നടന്ന റാലിക്കുള് അഭിസംബോധന ചെയ്തു

ബദ്ലാവ് കാ സങ്കൽപ് എന്നു പേരിട്ട പ്രകടനപത്രിക എഐസി ജനറൽ സെക്രട്ടറി രൺ ദീപ് സിംഗ് സുർജവാലയുടെയും മഹാ സഖ്യത്തിലെ മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് പുറത്തിറക്കിയത് പത്തു ലക്ഷം പേർക്ക് തൊഴിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളുടെ റദ്ദാക്കൽ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് ചണ്ഡീഗഡ് ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നാണ് എഫ് സി ഐക്കൊപ്പം മറ്റ് സർക്കാർ ഏജൻസികളും നെല്ല് സംഭരിച്ചത്